അവസരങ്ങൾ പ്രദാനം ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ലക്നൌ സന്ദർശനം ന്ടിള് ആരംഭിക്കും

ആധാർ രേഖകൾ ഉപയോഗിക്കണമെന്ന പൊതു താല്പര്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്രത്തിന്റെ അഭിപ്രായം തേടി

ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി

ജോഹന്നാസ് ബർഗിൽ ബ്രിക്സ് സമാപന സമ്മളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഇത് നിർണ്ണായകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ആഫ്രിക്കൻ മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താനുള്ള യത്നങ്ങൾക്ക് ഇന്തൃ ഉയർന്ന പരഗണനയാണ് നൽകുന്നത് സാമ്പത്തിക സഹകരണം ഇനിയും ഉയർന്ന നിലയിലെത്തും

നഗരവികസനം പ്രധാൻമന്ത്രി ആവാസ് യോജന ആട്ടൽ മിഷൻ എന്നീ മൂന്നു ഗവൺമെന്റ് സംരംഭങ്ങളുടെ ്മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നുത് പ്രധാൻമന്ത്രി ആവാസ് യോജനയിലെ ഗുണഭോക്താക്കളുമായി പ്രെധാനമന്ത്രി ആശയവിനിമയം നടത്തും ഉത്തർപ്രദേശിലെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും തുടർന്ന് പൊതു സമ്മേളനത്തെ ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

എസ്

ഒരു ഉല്പന്നത്തിനും വില വർദ്ധിച്ചിട്ടില്ല

നികുതി ദായകർക്കു മാത്രമല്ല മറിച്ച് ഉപഭോക്താക്കൾക്കും നികുതിയിളവിന്റെ പ്രയോജനം ലഭിച്ചു സമ്പദ്ഘടനയിലും വലിയ ചലനമാണ് ജി

ടി സൃഷ്ടിച്ചത്

ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചതാണ് ജി

രാജ്യം കണ്ട ഏറ്റവും വലിയ നികുതി പരിഷ്കരണത്തിലൂടെ നികുതി ഘടന ലളിതമായി മാറിയെന്നും അരുൺ ജയ്റ്റ്ലി പറഞ്ഞു

കാണാതായ കുട്ടികൾ പ്രായ്ക്കൂടിയവർ മാനസിക വൈകല്യമുള്ളവർ എന്നിപ്പ്രെ കണ്ടെത്താനും കുടുംബത്തിൽ തിരിച്ചെത്തിക്കാനുമുള്ള ന്ടപടികൾക്ക് സഹായം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിനും ഏഴ് സംസ്ഥാനങ്ങൾക്കും പരമോന്നത കോടതി നിർദ്ദേശം നൽകി കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനിൽ ഇപ്പോൾ നാല് ഒഴിവുകളുണ്ട് ഡിസംബറോടെ നാലു ഒഴിവുകൾ വീണ്ടുമുണ്ടാകും

നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയും ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ് മൻ കി ബ്രാത്തിന്റെ മലയാള രൂപം ആകാശവാണിയിലും ദൂരദർശ്ശനിലും ലഭിക്കും

സമൂഹ മാധ്യമങ്ങൾ ഇരുതലമൂർച്ചയുള്ള വാളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൈയിൽ കിട്ടുന്നതെന്തും പ്രചരിപ്പിക്കുന്ന രീതി ആശാസ്യമല്ല അസത്യ പ്രചരണം കൂടുതൽ വിപത്തുകളിലേക്ക് നയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോളേജ് വിദ്യാർത്ഥിനി ഹനാനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപവാദ പ്രചരണങ്ങളുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം

ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളം ചെറിയ അളവിൽ തുറന്നു വിടുന്നതിനെക്കറിച്ച് ആലോചിക്കുന്നത്

റിപ്പോർട്ട് സമഗ്രമായി ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഡാറ്റാ സുരക്ഷാ ബില്ലും ഇതിനോടൊപ്പമുണ്ട് ബില്ല് അവതരിപ്പിക്കും മുമ്പ് സമഗ്ര ചർച്ച നടത്തുമെന്നും ശ്രീ പ്രസാദ് പറഞ്ഞു

ഇന്നും നാളെയും ഗ്രഹണം കാണാനാവും വിശദവിവരങ്ങളുമായി സുലൈമാൻ

സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്

ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക അന്റാർട്ടിക്ക റഷ്യയുടെ വടക്കുഭാഗങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങൾ തെക്കേഅമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ചന്ദ്രഗ്രഹണം വൃക്തമായി കാണാൻ കഴിയും

ന്യൂഡൽഹിയിൽ വൈസ് ചാൻസിലർമാരുടേയും ഡയറക്ടർമാരുടേയും മൂന്നു ദിവസത്തെ ദേശീയ സമ്മേളനത്തിൽ അദ്ധ്യക്ഷ്യം വഹിച്ചു

സർവ്വകലാശാലകളിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം

വിദ്യാഭ്യാസ മേഖലയിലെ ഇന്ത്യയുടെ കരുത്ത് ലോകത്ത് പ്രകടിപ്പിക്കേണ്ട സമയമാണിതെന്ന് ശ്രീ

കരുണാനിധിയുടെ ആരോഗൃനില മെച്ചപ്പെട്ടു വരികയാണെന്ന് മകനും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ എം

അണുബാധയും പനിയും കുറഞ്ഞിട്ടുണ്ട് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നിരന്തര പരിച്ചരണിത്തിലാണ് കരുണാനിധിയെന്ന് സ്റ്റാലിൻ വസതിയിൽ പ്ാർത്താ ലേഖകരോട് പറഞ്ഞു കരുണാനിധിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും രോഗശമ്പൂം ആശംസിക്കുകയും ചെയ്ത രാഷ്ട്രപതി രാംനാഥ് ക്ടോവിന്ദ്രീനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്റ്റാലിൻ നന്ദി പറഞ്ഞു

ടി സി ഹോട്ടൽ അഴിമതി കേസിൽ ആർ

ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് പത്നി റാബ്രി ദേവി മകൻ തേജസ്വി യാദവ് എന്നിവരെ വിളിച്ചു വരുത്താമോ എന്ന കാര്യത്തിൽ ഡൽഹി കോടതി വിധി പറയാൻ മാറ്റി